തൃപ്പൂ ണിത്തു റയിലെ ക്രൈബ്രാഞ്ച് എസ് പി ഓഫീസിലാണ് ചോദ്യം ചെയ്യു ന്നത്

കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കിയാണ് ചോദ്യം ചെയ്യൽ നടത്തുന്നത് ഇതിന് മുന്നോടിയായി സാക്ഷി മൊഴികളും തെളിവെടുപ്പും നടന്നിരുന്നു

സുഭാഷിന്റെ നേതൃ ത്വത്തിൽ അഞ്ച് അംഗസംഘമാണ് ചോദ്യം ചെയ്യുന്ന തെന്നാണ് റിപ്പോർട്ട് ഐ ജിമാർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് നേരത്തെ ഐ ജി വിജയ് സാഖറെയുടെ അധ്യക്ഷതയിൽ കൊച്ചിയിൽ യോഗം ചേർന്നതിന് ശേഷമാണ് അന്വേഷണസംഘം തൃപ്പൂണിത്തുറയിൽ എത്തിയത്

കനത്ത സുരക്ഷയാണ് തൃപ്പൂണിത്തുറയിലും പരിസര ങ്ങളിലും പൊലീസ് ഒരുക്കിയിരിക്കുന്നത്

ബിഷപ്പിന്റെയും കന്യാസ്ത്രീയുടെയും സാക്ഷികളുടെയും മൊഴിക്ൾ വിലയിരുത്തിയശേഷമേ ഇക്കാര്യത്തിൽ അന്തിമതീരുമാനമുണ്ടാകൂ എന്നും അറ സ്റ്റിന് തടസ്സമൊന്നുമില്ലെന്നും അദ്ദേഹം കൊച്ചിയിൽ പറ ഞ്ഞു മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും വ്യത്യാസങ്ങളും ദൂരീകരിക്കുന്നതിനാണ് ബിഷപ്പിന്റെ മൊഴിയെടുക്കുന്ന തെന്നും അദ്ദേഹം അറിയിച്ചു തെളിവുകളുണ്ടെന്നു ബോധ്യപ്പെട്ടാൽ അറസ്റ്റുണ്ടാവുമെന്നും എസ് പി പറ ഞ്ഞു ഹൈക്കോടതി ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല

അതേസമയം ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റുചെ യ്യുന്നതിന് നിയമതടസ്സങ്ങളിലെന്ന് ബിഷപ്പിനെതിരായ പീഡനക്കേസ് അന്വേഷിക്കുന്ന വൈക്കം ഡി വൈ എസ് പി കെ സുഭാഷും കൊച്ചിയിൽ അറിയിച്ചു

ജി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സാമൂഹ്യപ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ ചലച്ചിത്രതാരം ജോയ്മാത്യു എന്നിവരടക്കം നിരവധിപേർ മാർച്ചിൽ പങ്കെടുത്തു ശക്തമായ പൊലീസ് സന്നാഹം ഐ ജി ഓഫീസിനു മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ബാരിക്കേഡ് ഉപയോ ഗിച്ച് പൊലീസ് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്തെ പ്രളയ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങ ളുടെ പുരോഗതി ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അവ ലോകനം ചെയ്തു മുഖ്യമന്ത്രി പിണറായിവിജയൻ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയ ശേഷം ആദ്യമായാണ് മന്ത്രിസഭായോഗം ചേർന്നത്

മന്ത്രി ഇ പി ജയരാജൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു

മന്ത്രിസഭായോഗം ചേരാത്തിനെതിരെ സംസ്ഥാ നത്ത് ഭരണസ്തംഭനമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്തുവന്നിരുന്നു

നഷ്ടപരിഹാരം നൽകിയവരുടെ പട്ടിക ഗവൺമെന്റ് പ്രസിദ്ധീകരിക്കാത്തെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു

കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന കേസിൽ സമയബന്ധി തമായ അന്വേഷണം നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷനേതാവ് ആരോ പിച്ചു പ്രതി ആരാണെന്ന് പറയാൻ തനിക്കാവിലെന്നും അന്വേ ഷണം പൂർത്തിയാക്കി ജനങ്ങളെ ഇനിയെങ്കിലും നിജസ്ഥിതി അറിയിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു ബാർകോഴ കേസിൽ കെഎം മാണി കുറ്റക്കാരനല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു മാണിക്കെതിരെ ഇനിയെത്ര അന്വേ ഷണം നടത്തിയാലും തെളിവുകളൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ചാരക്കേസിൽ തെളിവുകളൊന്നും കൈവ ശമില്ലാത്തതിനാൽ ജുഡീഷ്യൽ കമ്മീഷനുമുന്നിൽ താൻ ഹാജ രാകേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി നിലയ്ക്കൽ പമ്പാ യാത്രാനിരക്ക് വർദ്ധിപ്പിച്ച നടപടി കെ എസ് ആർ ടി സി എത്രയും വേഗം പിൻവലിക്കണമെന്നും രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു

വ്യക്തികൾ സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള ധനസമാഹരണത്തിനാണ് പദ്ധതി

മുത്തലാഖ് നിയമവിരുദ്ധമാക്കുകയും പ്രതി കൾക്ക് മൂന്ന് വർഷം ജയിൽശിക്ഷ ഉറപ്പാക്കുന്നതുമായ ഓർഡിനൻസാണ് മന്ത്രിസഭ അംഗീകരിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ മുത്തലാഖ് ബിൽ ലോക്സഭ പാസാക്കിയിരുന്നു എന്നാൽ രാജ്യ സഭയിൽ ബിൽ പാസാക്കാൻ കഴിയാത്ത സാഹചരൃത്തിലാണ് ഓർഡി നൻസ് കൊണ്ടുവന്നത് ബില്ലിൽ ഭേദഗതി വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു ഭേദഗതിപ്രകാരം മുത്ത ലാഖ് കേസിൽ പ്രതിയായ പുരുഷന് ജാമ്യം നൽകാൻ കേസിലെ ഇരയായ സ്ത്രീയുടെ അനുമതിയോടെ മജി സ്ട്രേറ്റിന് അധികാരമുണ്ടായിരിക്കും കുട്ടികളുടെ സംര ക്ഷണത്തിന് സ്ത്രീയുടെ അപേക്ഷയിലും മജിസ്ട്രേ റ്റിന്റെ വിധി അന്തിമമായിരിക്കും എന്നാൽ ശിക്ഷാകാ ലാവധിയിൽ മാറ്റം വരുത്തിയിട്ടില്ല

ഗൾഫ് നാടുകളിൽ ശമ്പള ത്തിലുണ്ടായ വൻകുറവാണ് ഇതിന് പ്രധാന കാരണ മായി പറയുന്നത്

സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ എട്ടാമത്തെ സർവെയാണ് ഈ വർഷം പൂർത്തിയാക്കിയത്

കഴിഞ്ഞ വർഷം യുകഎ ഇയിൽ അറസ്റ്റിലായ ഇയാളെ വിട്ടുകിട്ടുന്നതിന് നിയമനടപടി കൾ ദുബായ് കോടതിയിൽ നടന്നുവരികയായിരുന്നു

അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയു മായി അദ്ദേഹം നിർണ്ണായക ചർച്ചകൾ നടത്തും

പുതിയ വികസന പങ്കാളിത്തത്തിൻ കീഴിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഈയിടെയാണ് ഇന്ത്യയും അഫ് ഗാ നി സ്ഥാനും തീരു മാ നി ച്ച ത് താലിബാനുമായി അനുരഞ്ജനത്തിന് ഇൌയിടെ ആരംഭിച്ച നീക്കത്തെക്കുറിച്ച് ഖനി പ്രധാനമന്ത്രിയെ ധരി പ്പിച്ചേക്കും നീക്കത്തെ പ്രധാനമന്ത്രിയും ഗവൺമെന്റും പിന്തുണച്ചിരുന്നു

രാഷ്ട്രീയത്തിൽനിന്ന് അകന്നുനിൽക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്ന തെന്നും സംഘത്തിന് ദേശീയ താൽപര്യങ്ങളിൽ വൃക്തമായ കാഴ്ചപ്പാടുണ്ടെന്നും ഭഗവത് ന്യൂഡൽഹി യിൽ പറഞ്ഞു

സുംവിധാനവും

ദുബായിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡി യത്തിൽ വൈകീട്ട് അഞ്ചിനാണ് മത്സരം ഇന്ന് ജയി ക്കുന്ന ടീം ഗ്രൂപ്പ് ജേതാക്കളാവും ആദ്യമത്സരം ജയിച്ച പാകിസ്ഥാൻ സൂപ്പർഫോറിൽ ഇടം നേടിയിട്ടുണ്ട് ഏകദിനത്തിൽ മികച്ച ഫോമിൽ കളിക്കുന്ന ടീമുകളാണ് ഇന്തൃയും പാകിസ്ഥാനും

സൂപ്പർഫോർ മത്സരങ്ങൾ മറ്റ ന്നാൾ ആരംഭിക്കും

പനമ്പിള്ളി നഗറിലെ ജോഗോ അറീനയിൽ ഇന്ത്യ ആസ്ട്രേലിയൻ ബ്ലൈൻഡ് ടീമിനെ സൌഹൃദ മത്സ രത്തിൽ നേരിടും ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിക്കു ന്നത്

അതിനിട്ടെ വിമാനത്താവളത്തിന് ലൈസൻ സ് ലഭിക്കുന്നതിന് മുന്നോടിയായി പരിശോധന തുടരുകയാണ് ഡയരക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തു ന്നത് അസിസ്റ്റന്റ് ഡയരക്ടർ സെന്തിൽ ദക്ഷിണ മേഖല ജോയിന്റ് ഡയറകൂർ അശ്വിൻകുമാർ എന്നിവർ പരിശോധ നയ്ക്ക് നേതൃത്വം നൽകിവരുന്നു